ഇരിട്ടി മാക്കൂട്ടം ചുർം റോഡിൽ ഇന്നുമുതൽ ചെറു വാഹന ങ്ങൾക്കും ഓടാൻ അനുമതി നൽകി

സെമിയിൽ അടുത്ത ചൊവ്വാഴ്ച ഫ്രാൻസ് ബെൽജി യത്തെ നേരിടും

സംസ്ഥാനത്തെ ഏത് റേഷൻ കടയിൽനിന്നും ഉപ ഭോക്താക്കൾക്ക് റേഷൻ വാങ്ങാൻ സൌകര്യം നൽകുന്ന സംവിധാനം അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറത്തി റങ്ങി ആധാർ അധിഷ്ഠിത പോർട്ടബിലിറ്റി സംവിധാന ത്തിലൂടെയാണ് ഈ സൌകര്യം ലഭ്യമാക്കുന്നത് റേഷൻ കാർഡ് ഉപയോഗിച്ച് ഏത് റേഷൻ കടയിൽനിന്നും ഇ പോസ് മെഷീന്റെ സഹായത്തോടെ ഉല്പന്നങ്ങൾ വാങ്ങാൻ ഇതോടെ സാധ്യമാകും

ജി

നിലവിൽ യു ജി

പുതുക്കിയ നിരക്ക് പ്രകാരം യു ജി

സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇക്കൊല്ലത്തെ ഓണ പ്പരീക്ഷ ഓണാവധിക്കുശേഷം നടത്തിയാൽ മതിയെന്ന് തീരുമാനമായി

നിപാ ബാധയെത്തുടർന്ന് കോഴിക്കോ ട് മലപ്പുറം ജില്ലകളിൽ നിരവധി അധ്യയന ദിവസങ്ങൾ നഷ്ടമായതിനെത്തുടർന്നാണ് ഈ നടപടി കാലവർഷത്തിൽ തകർന്ന വയനാട് ചുരത്തിലൂടെ താൽക്കാലികമായി എല്ലാ യാത്രാവാഹനങ്ങളും ഇന്നു മുതൽ കടത്തിവിടുമെന്ന് ജില്ലാ കലക്ടർ യു പി ജോസ് അറിയിച്ചു മഴ കുറഞ്ഞതിനെത്തുടർന്നാണ് ടൂറിസ്റ്റ് ബസ്സു കളടക്കം വാഹനങ്ങൾക്ക് അനുമതി നൽകാൻ തീരുമാ നിച്ചത്

അത്തരം വാഹനങ്ങൾ കുറ്റ്യാടി വഴി തുടർന്നും പോകേണ്ടതാണ് ഉരുൾപൊട്ടലിൽ തകർന്ന ഇരിട്ടി മാക്കൂട്ടം ചുരം റോഡിൽ ഇന്നുമുതൽ ചെറുവാഹനങ്ങൾ ഓടാൻ അനു വദിക്കും ഒരു് മാസത്തോളമായി ചുരം റോഡ് അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയാണ് ചെറുവാഹ നങ്ങൾക്ക് അനുമതി നൽകുന്നതോടെ ഗതാഗത പ്രശ്ന ത്തിന് ഒരു പരിധി വരെ പരിഹാരമാകും വലിയ വാഹ നങ്ങൾ അറ്റകുറ്റപ്പണി പൂർത്തിയായ ശേഷമേ ചുരം റോഡ് വഴി കടത്തിവിടൂ എന്ന് അധികൃതർ അറിയിച്ചു

സംസ്ഥാന ക്ഷീരവികസനവകുപ്പ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ ആരം ഭിച്ച ക്ഷീരഗ്രാമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശ്രീകണ്ഠാപുരം കോട്ടൂർ ജൈവവൈവിധ്യ പാർക്കിലെ ചിത്രശലഭങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ക്കെപ്പുസ്തകം മറ്റൊരു ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാ നത്ത് രണ്ടരലക്ഷം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് മന്ത്രി ഡോ

ടി ജലീൽ പാലക്കാട്ട് അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവ്വഹണ അവ ലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

റേഷൻ കാർഡ് ഇല്ലാത്തവരെ ഗ്രാസഭക ളുടെ അംഗീകാരത്തോടെ പദ്ധതിക്ക് പരിഗണിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു

തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിലെ കോഴഞ്ചേ രിയിൽ പുതു തായി നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം മന്ത്രി ജി സുധാകരൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും

എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചാ യത്തിൽ ആറ് അംഗൻവാടികൾ ഇന്നുമുതൽ ഹൈടെക് ആകും മന്ത്രി എം എം മണി ഉദ്ദ്ഘാടനം ചെയ്യും പാലക്കാട് എളമ്പുലാശ്ശേരി ലഫ് കേണൽ നിര ഞ്ജൻ സ്മാരക ഗവൺമെന്റ് ഐ ടി ഐയുടെ പുതിയ കെട്ടിടം ഇന്ന് തുറക്കും രാവിലെ മന്ത്രി ടി

രാമകൃ ഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ലോകകപ്പ് ഫുട്ബോളിൽനിന്ന് ബ്രസീൽ പുറത്താ യി ബെൽജിയത്തോട് ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോറ്റാണ് ലോകകപ്പിൽനിന്ന് ബ്രസീലിന്റെ മടക്കയാത്ര

ബ്രെയിൻ നേടിയ മനോഹരമായ ഒരു ഗോളിനുമാണ് ലാറ്റിനമേരിക്കൻ ശക്തിയായ ബ്രസീലിന്റെ പരാജയം മറ്റൊരു മത്സരത്തിൽ ശക്തരായ ഫ്രാൻസ് ഉറു

സെമിയിൽ അടുത്ത ചൊവ്വാഴ്ച ഫ്രാൻസ് ബെൽജി യത്തെ നേരിടും ബ്രസീൽ തോറ്റ് മടങ്ങുമ്പോൾ ലാറ്റിനമേരിക്കൻ മനോ ഹര ഫുട്ബോൾ ടീമിനുമേൽ യൂറോപ്യൻ പവർ ഫുട്ബോളിന്റെ ആധിപത്യമാണ് ഇന്നലെ കണ്ടത്

ലോകത്തിൽ മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാളായ ഡിബ്രൂയിനെ മാർക്ക് ചെയ്യാതിരുന്നത് ബ്രസീലിന്റെ വീഴ്ചക്ക് കാര ണമായി

ബെൽജിയം ലോകകപ്പ് സെമിയിലെത്തുന്നത് രണ്ടാം തവണയാണ്

ഇതോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഇരു ടീമു കളും ഓരോ വിജയം നേടി

കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹിയായി രിക്കെ വരുത്തിയ ക്രമക്കേടിൽ ടി

സി എ ഓംബുഡ്സ്മാൻ നിർദ്ദേശി ച്ചു സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ക്കെ സി എ അന്വേ ഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു സ്വദേശി സംരംഭങ്ങളുടെ വ്യാപനവും വിപണനവു മാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കാസർകോട് ചെറുവത്തൂരിൽ നീലേശ്വരം ബ്ലോക്ക് സ്റ്റാർട്ടപ് വില്ലേജ് സംരംഭകത്വ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ നടത്തിയതോടെ അക്കാദമിക് ഭൌതിക മേഖലകളിൽ പൊതു വിദ്യാഭ്യാസ മേഖല ജൈത്രയാത്ര ആരംഭിച്ചതായി മന്ത്രി ഇ

കാസർകോട് കാഞ്ഞങ്ങാട് ഉപ്പി ലിക്കൈ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട ഉദ്ഘാട നവും പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർവ്വ ഹിക്കുകയായിരുന്നു മന്ത്രി കരുനാഗപ്പള്ളി താലൂക്കാശുപത്രിയിൽ ഇന്നലെ രാത്രി ഉണ്ടായ ഡി

ഐ ആർ

ആറുമാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത് പത്തനംതിട്ട ജില്ലയിലെ പത്ത് വില്ലേജ് ഓഫീസുക ളിൽ വിജിലൻസ് സംഘം ഇന്നലെ മിന്നൽ പരിശോധന നടത്തി ഓഫീസുകളിൽ സേവനാവകാശ നിയമലം ഘനം ഉണ്ടായതായി പരിശോധനയിൽ കണ്ടെത്തി കൈക്കൂലി കൊടുത്തവർക്ക് സീനിയോറിറ്റി മറി കടന്ന് സേവനങ്ങൾ നൽകിയതിന്റെ തെളിവുകൾ വിജി ലൻസിന് ലഭിച്ചു

ഉച്ചയ്ക്ക് മന്ത്രി ടി

രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും

പുനലൂർ പാലക്കാട് പുനലൂർ പാലരുവി എക്സ്പ്രസ് തിങ്കളാഴ്ച മുതൽ തിരുനെൽവേലി വരെ നീട്ടി

കൊല്ലം ഇടമൺ പാസഞ്ചർ ചെങ്കോട്ട വരെ നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിയിപ്പ് ലഭിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം

ഇതോടെ മിക്ക രോഗങ്ങൾക്കും പ്രാഥ മിക ചികിത്സ ഇത്തരം കേന്ദ്രങ്ങളിൽ ലഭ്യമാകും ഔട്ട് പേഷ്യന്റ് വിഭാഗം കൂടുതൽ സമയം പ്രവർത്തിക്കു കയും ചെയ്യും